വായ്പാ തട്ടിപ്പ് കേസിൽ നീരവ് മോദിയെ അറസ്റ്റ് ചെയ്യാൻ സി ബി ഐ ഇന്റർ പോളിനെ സമീപിച്ചു

കേരളത്തിൽ കനത്ത മഴ തുടരുന്നു ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം

ലോകക്കപ്പ് ഫുട്ബോളിന് വ്യാഴാഴ്ച കിക്കോഫ് പ്രധാന ടീമുകളെല്ലാം റഷ്യയിൽ

കഴിഞ്ഞ നാല് വർഷത്തെ റെയിൽവേയുടെ നേട്ടങ്ങൾ വിശദീകരിച്ച് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു അദ്ദേഹം റെയിൽവേയുടെ നവീകരണത്തിനും വികസനത്തിനുമായി വലിയ നിക്ഷേപമാണ് കേന്ദ്രഗവൺമെന്റ് നടത്തുന്നത് റെയിൽവേയുടെ സുരക്ഷ സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനാവശ്യമായ തുക കണ്ടെത്താൻ രാഷ്ട്രീയ റെയിൽ സംരക്ഷകോശ് എന്ന പേരിൽ ഒരു ലക്ഷം കോടി രൂപയുടെ പ്രത്യേക ഫണ്ട് രൂപീകരിച്ചതായും കേന്ദ്രമന്ത്രി അറിയിച്ചു

പിയൂഷ് ഗോയൽ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നമായ എല്ലാവർക്കും വൈദ്യുതി എന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇത് സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു

യാത്രക്കാർക്ക് അവരുടെ പരാതികളിന്മേൽ സ്വീകരിച്ച നടപടികളെ കുറിച്ച് ഉടനടി പ്രതികരണവും ആപ് നൽകും പരാതി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ യാത്രക്കാരന് എസ്എംഎസിലൂടെ ഉടൻ തന്നെ ഒരു ഐഡിയും തുടർന്ന് പരാതിയിന്മേൽ റെയിൽവേ സ്വീകരിച്ച നടപടിയും സന്ദേശമായി അയച്ചു നൽകും

ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രാലയത്തിന്റ നാല് വർഷത്തെ പ്രവർത്തന പുരോഗതി മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെയും ആരോഗൃ പ്രവർത്തകരുടെയും സംയുക്ത ദൌതൃത്തിന്റെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത്

ആഗോള പ്രതിരോധ കുത്തിവെയ്പ്പ് പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ വാക്സിനുകൾ സൌജന്യമായി നൽകാൻ കഴിഞ്ഞതായും കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിച്ചു

ബി

ഒരു വ്യക്തിക്കെതിരെ ഇന്റർപോൾ റെഡ്കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചാൽ അയാളെ ലോകത്തെ ഏതു രാജ്യത്തുനിന്നായാലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടക്കാത്ത കേസിലാണ് നടപടി

ജെ പി തള്ളി

ജെ പി വക്താവ് നളിൻ കോലി ആകാശവാണിയോട് പറഞ്ഞു കോൺഗ്രസ് നേതാവ് പി ചിദംബരം ഉന്നയിച്ച ആരോപണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പെട്രോൾ ഡീസൽ വില വർദ്ധനയ്ക്കെതിരെ ശക്തമായ അമർഷം നിലനിൽക്കുന്നതായും പ്രതീക്ഷിച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു

വെള്ളിയാഴ്ച ചിലയിടങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

മലയോര മേഖലയിലെ റോഡുകൾക്ക് കുറുകെയുള്ള ചെറിയ ചാലുകളിലൂടെ മലവെള്ളപ്പാച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ ചാലുകളുടെ അരികിൽ വാഹനങ്ങൾ നിർത്തുന്നത് അനുവദിക്കാൻ പാടില്ല

മഴക്കാലവുമായി ബന്ധപ്പെട്ട തയാറെടുപ്പുകൾ വിവിധ വകുപ്പുകൾ സ്വീകരിച്ചു എന്ന് ഉറപ്പ് വരുത്തണം

മണ്ണിടിച്ചിൽ കാരണം ബംഗളുരുവിൽ നിന്ന് മംഗളുരുവിലേക്കുള്ള ട്രെയിൻ ഗതാഗതം നിറുത്തി വച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു

ഇടിമിന്നലിലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടായത്

പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ വർഷം നിർമ്മാണ വർഷമായാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം ആചരിക്കുന്നത്

എസ് ഉത്തരകൊറിയ ഉച്ചുകോടിയെ അവസരമായാണ് ഉത്തരകൊറിയൻ മാധൃമങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൊറിയൻ മേഖലയിൽ സുസ്ഥിര സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ മുൻനിർത്തിയായിരിക്കും ചർച്ച കിംങുമായുള്ള കൂടിക്കാഴ്ച വഴിത്തിരിവാകുമെന്ന് ട്രംപ് ട്വിറ്ററിൽ കുറിച്ചിരുന്നു

ചർച്ചയ്ക്കായി ഇരു നേതാക്കളും സിംഗപ്പൂരിൽ ഇതിനകം എത്തിക്കഴിഞ്ഞു കിംങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീസീൻ ലൂങുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തി

ഇതിന്റെ ഭാഗമായി കനത്ത സുരക്ഷയാണ് ദ്വീപിൽ ആകമാനം ഒരുക്കിയിരിക്കുന്നത്

ലോക രാജ്യങ്ങൾ വലിയ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടും കൂടിയാണ് ട്രംപ് കിംങ് കൂടിക്കാഴ്ചയെ ഉറ്റുനോക്കുന്നത്

ടീമുകളോരോന്നായി അർജന്റീനയുടെ ലയണൽ മെസ്സിയും സംഘവും പ്രത്യേകം അലങ്കരിച്ച വിമാനത്തിലാണ് മോസ്ക്കോയിൽ എത്തിയത് മുഹമ്മദ് സലാ നേതൃത്വം കൊടുക്കുന്ന ഈജിപ്ഷ്യൻ ടീമും എത്തിയിട്ടുണ്ട് ഉദ്ഘാടന മത്സരത്തിൽ റഷ്യയെ നേരിടുന്ന സൌദി അറേബൃയും എത്തിച്ചേർന്നു